എം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുന്ന ബി ജെ

ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ നാളെ ന്യൂഡൽഹിയിൽ ഉപരാഷ്ട്രപതി എം വെങ്കയ്യനായിഡു സമ്മാനിക്കും അന്തരിച്ച പ്രശസ്ത ഛായാഗ്രാഹകൻ രാമചന്ദ്ര ബാബുവിന്റെ സംസ്കാരം വൈകിട്ട് തിരുവനന്തപുരം ശാന്തികവാടത്തിൽ

സംസ്ഥാനത്ത് അരലക്ഷംപേർക്ക് അടുത്ത മാർച്ചിനകം പട്ടയം നൽകുമെന്ന് മന്ത്രി ഇ ചന്ദ്രശേഖരൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ അൽപ്പസമയത്തി നകം പൊതുറാലിയിൽ പങ്കെടുക്കും ഡൽഹിയിലെ അനധികൃത കോളനികളിലെ താമസക്കാർക്ക് ഭൂമി നിയമ വിധേയമായി നൽകു ന്നതുമായി ബന്ധപ്പെട്ടാണ് ബി ജെ പി ഡൽഹി ഘടകം രാം ലീല മൈതാനിയിൽ റാലി സംഘടിപ്പിച്ചിരിക്കുന്നത് കഴിഞ്ഞ നാലാം തിയ്യതിയാണ് ഇതുസംബന്ധിച്ച തീരുമാനുമുണ്ടായത് റാലിയിൽ പതിനായിരങ്ങൾ പങ്കെടുക്കുമെന്നാണ് റിപ്പോർട്ട് കർശന സുരക്ഷാ സംവിധാനങ്ങൾക്കിടയിലാണ് റാലി പൌരത്വ നിയമഭേദഗതിയുമായി ബന്ധപ്പെട്ട് രാജ്യത്ത് വലിയ കുപ്രചാരണമാണ് നടക്കുന്നതെന്ന് കേന്ദ്രസഹമന്ത്രി വി മുരളീധ രൻ അഭിപ്രായപ്പെട്ടു മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും പ്രതി പക്ഷനേതാവ് രമേശ് ചെന്നിത്തലയുടെയും സമീപനം എരിതീ യിൽ എണ്ണ ഒഴിക്കുന്നതാണ് ഭരണഘടനാ പദവി മറന്നാണ് ഇവ രുടെ പെരുമാറ്റമെന്നും മുരളീധരൻ തിരുവനന്തപുരത്ത് സ്ഥകാര്യ ചാനലിനോട് പറഞ്ഞു പൌരത്വം ഭേദഗതി നിയമം സംബന്ധിച്ച് പരാതിയുണ്ടെങ്കിൽ മുഖ്യമന്ത്രിയ്ക്ക് കോടതിയെ സമീപിക്കാ മെന്നും മുരളീധരൻ പറഞ്ഞു

ഇത്തരം പ്രചാരണങ്ങൾ ആരെയൊക്കെയോ പറ്റിക്കാനാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി രാജ്യത്തേക്ക് വരുന്ന എല്ലാവർക്കും പൌരത്വം നൽകാനാവില്ല എന്നാൽ ജോലി സംബന്ധമായ ആവ ശൃങ്ങൾക്ക് വരുന്നവർക്ക് വർക്ക് പെർമിറ്റ് നൽകുന്ന കാര്യം വിദേ ശകാര്യ മന്ത്രാലയം പരിശോധിക്കുമെന്നും മുരളീധരൻ അറിയി ച്ചും മഹാത്മാഗാന്ധിയും ജവഹർലാൽ നെഹ്റുവും നൽകിയ വാക്കാണ് പൌരത്വ ഭേദഗതി നിയമത്തിലൂടെ കേന്ദ്രഗവൺമെന്റ് പാലിച്ചതെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞു പാക്കി സ്ഥാനിൽ ദയനീയ ജീവിതം നയിച്ചവർക്ക് നൽകിയ വാഗ്ദാന മായിരുന്നു പൌരത്വം ഈ വാഗ്ദാനം ഗവൺമെന്റ് പാലിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു

ശബരിമല യുവതീപ്രവേശന വിഷയത്തിൽ റിവ്യൂഹർജികൾ സുപ്രീംകോടതിയുടെ വിശാലബെഞ്ച് ജനുവരിയിൽ പരിഗണി ച്ചേക്കും സുപ്രീംകോടതി രജിസ്ട്രി ഹർജികളുടെ നാല്സെറ്റ് രേഖ കൾകൂടി സമർപ്പിക്കാൻ ബന്ധപ്പെട്ട കക്ഷികൾക്ക് നോട്ടീസ് നൽകി ക്രിസ്മസ് അവധിക്കുശേഷം ജനുവരി ആറിനാണ് സുപ്രീംകോടതി തുറക്കുന്നത് ചരക്കുസേവന നികുതിയുമായി ബന്ധപ്പെട്ട മാറ്റങ്ങൾ വർഷാ വർഷം മാത്രമേ പരിഗണിക്കൂവെന്ന് ബിഹാർ ഉപമുഖ്യമന്ത്രിയും ചരക്കുസേവന നികുതി മന്ത്രിതല കൌൺസിൽ കൺവീനറുമായ സുശീൽകുമാർ മോദി വൃക്തമാക്കി ഓരോ ജി

ടി കൌൺസിൽ യോഗത്തിലും ഇതുമായി ബന്ധപ്പെട്ട മാറ്റങ്ങൾ പരി ഗണിക്കില്ലെന്ന് അദ്ദേഹം പറഞ്ഞു ന്യൂഡൽഹിയിൽ ഫിക്കി വാർഷിക സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കഴിഞ്ഞ വർഷത്തെ ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ നാളെ ന്യൂഡൽഹിയിൽ ഉപരാഷ്ട്രപതി എം വെങ്കയ്യനായിഡു വിതരണം ചെയ്യും ചടങ്ങിൽ ദാദാ സാഹിബ് ഫാൽക്കേ പുരസ്കാരം ബോളി വുഡ് നടൻ അമിതാഭ് ബച്ചന് സമ്മാനിക്കും മലയാളത്തിന് ഏഴ് പുരസ്കാരങ്ങളാണുള്ളത് കഴിഞ്ഞ നവംബറിലെ ജി

കേന്ദ്ര പ്രത്യക്ഷ നികുതി ബോർഡ് ട്വിറ്ററിൽ അറിയിച്ചതാണിത് അന്തരിച്ച പ്രശസ്ത ഛായാഗ്രാഹകൻ രാമചന്ദ്ര ബാബുവിന്റെ സംസ്കാരം വൈകിട്ട് തിരുവനന്തപുരം ശാന്തികവാടത്തിൽ നടക്കും ഹൃദയാഘാതത്തെത്തുടർന്ന് ഇന്നലെ വൈകിട്ട് കോഴി ക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലായിരുന്നു അന്ത്യം സിനിമ ചിത്രീകരണവുമായി ബന്ധപ്പെട്ട് ലൊക്കേഷൻ പരിശോധിക്കാൻ കോഴിക്കോട്ട് എത്തിയതായിരുന്നു അദ്ദേഹം മലയാള സിനിമയുടെ സാങ്കേതിക മുന്നേറ്റത്തിലെ അമരക്കാരിൽ ഒരാളായിരുന്ന രാമചന്ദ്രബാബുവിന് നാലു തവണ മികച്ച ഛായാഗ്രാഹകൻ എന്ന നിലയിൽ സംസ്ഥാന പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് ഇന്ത്യ വെസ്റ്ഇൻഡീസ് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ മൂന്നാ മത്തെയും അവസാനത്തെയും മത്സരം ഇന്ന് കട്ടക്കിൽ നടക്കും

കഴിഞ്ഞ പരമ്പരയിലെ ആദ്യ രണ്ട് മത്സരങ്ങളിൽ ഓരോ വിജയം നേടിയ ഇരു ടീമുകൾക്കും ഇന്നത്തെ മത്സരം നിർണായകമാണ്

ഫുട്ബോളിൽ ഇന്ന് എഫ് സി ഗോവ ഒഡിഷ എഫ്

യെ നേരിടും

ടി ബി പർവത സൈക്കിൾ ട്രാക്കിൽ കേരള അന്താരാഷ്ട്ര മത്സരങ്ങൾക്ക് തുടക്കമായി മാനന്തവാടി പഞ്ചാരക്കൊല്ലിയിലെ പ്രിയദർശിനി ടീ എൻവയൺസിൽ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഫ്ളാഗ് ഓഫ് ചെയ്തു

സംസ്ഥാനത്ത് അരലക്ഷം പേർക്ക് അടുത്ത മാർച്ചിനകം പട്ടയം നൽകുമെന്ന് മന്ത്രി ഇ

കോഴിക്കോട് ജില്ലാതല പട്ടയമേള ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി

ബാങ്ക് അക്കൌണ്ട് ആരംഭിക്കുമ്പോൾ കെ

സി ഫോറത്തിൽ മതം രേഖപ്പെടുത്തു ന്നത് നിർബന്ധമാക്കിയെന്ന റിപ്പോർട്ടു കളെ തുടർന്നാണ് കേന്ദ്രധനകാര്യ സെക്രട്ടറിയുടെ വിശദീകരണം ഭിന്നശേഷിക്കാരെ പൊതുസമൂഹത്തിന് മുന്നിലെത്തിച്ച് അവ രുടെ കഴിവുകൾ വളർത്തിയെടുക്കാൻ പരിശ്രമിക്കണമെന്ന് മന്ത്രി ഡോ

വരം പുരസ്കാരം മജീഷ്യൻ ഗോപിനാഥ് മുതുകാടിന് മന്ത്രി സമ്മാ നിച്ചു ശബരിമല മണ്ഡല മഹോത്സവത്തിന്റെ ഭാഗമായി തങ്കഅങ്കി ഘോഷയാത്രയ്ക്ക് നാളെ തുടക്കമാകും രാവിലെ ഏഴിന് ആറ ന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്ന് ഘോഷയാത്ര പുറപ്പെ ടും വിവിധ ക്ഷേത്രങ്ങളിലെ സ്വീകരണങ്ങൾക്കുശേഷം വ്യാഴാഴ്ച സന്നിധാനത്തെത്തും

എസ് ഇ

ടി വി യുടെ നിരീ ക്ഷണത്തിലാക്കാൻ ഡയറക്ടർ ബോർഡ് യോഗം തീരുമാനിച്ച തായി റിപ്പോർട്ട്

തിരുവനന്തപുരത്ത് ഡാം സുരക്ഷാ ചീഫ് എഞ്ചിനീയറുടെ ഓഫീസിൽ കൺട്രോളിങ് യൂണിറ്റും സ്ഥാപിക്കും വ്യാഴാഴ്ച ദൃശ്യമാകുന്ന വലയ സൂര്യഗ്രഹണം വീക്ഷിക്കാൻ കേരള ശാസ്ത്ര സാങ്കേതിക മ്യൂസിയത്തിന്റെ ആഭിമുഖ്യത്തിൽ ക്രമീകരണങ്ങൾ ഒരുക്കും സംസ്ഥാനത്ത് നാല് കേന്ദ്രങ്ങളിലാണ് ഗ്രഹണം സുരക്ഷിതമായി കാണാൻ അവസരമൊരുക്കു ക തിരുവനന്തപുരം നഗരം കോട്ടയം കുറുവിലങ്ങാട് തൃശൂർ ചാല ക്കുടി കോഴിക്കോട് നാദാപുരം എന്നിവിടങ്ങളാണ് തെരഞ്ഞെടു ത്തത്

ഓൺലൈൻ വഴിയാണ് അപേക്ഷ നൽകേണ്ടത്

സുരക്ഷാ നടപടിയുടെ ഭാഗമായി കരിപ്പൂർ വിമാനത്താവള ത്തിൽ അത്യന്താധുനിക സംവിധാനങ്ങൾ സ്ഥാപിച്ചു അടുത്ത മാസം രണ്ടിന് ഇതിന്റെ പ്രവർത്തനം ആരംഭിക്കും വൈമാനി കർക്ക് റൺവേയുടെ ദിശയും ദൂരവും നിർണയിക്കാൻ സാധി ക്കുന്നത് ഉൾപ്പെടെ സംവിധാനങ്ങളാണ് സ്ഥാപിച്ചത് കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിൽ രാമനാട്ടുകര യക്കും കൊണ്ടോട്ടിയ്ക്കും ഇടയിൽ നാളെ മുതൽ ഗതാഗത നിയ ന്ത്രണം ഏർപ്പെടുത്തി ടാറിങ് പ്രവൃത്തിയുടെ ഭാഗമായാണ് നട പടിയെന്ന് മലപ്പുറം ദേശീയപാതാവിഭാഗം അറിയിച്ചു ക്രിസ്മസ് കാലയളവിൽ പ്രത്യേക പരിശോധനകൾ സംഘടിപ്പിക്കണമെന്ന ലീഗൽ മെട്രോളജി കൺട്രോളറുടെ നിർദ്ദേശപ്രകാരം മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസറഗോഡ് ജില്ലകളിൽ പ്രത്യേക സ്കാഡുകൾ പ്രവർത്തനം തുടങ്ങി വരും ദിവസങ്ങളിൽ പരിശോധന ശക്തമാക്കുമെന്ന് ഉത്തരമേഖലാ ഡെപ്യൂട്ടി കൺട്രോളർ അറിയിച്ചു

കൊച്ചിമെട്രോ വിദ്യാർഥികൾക്കായി കൊച്ചി വൺ കാർഡ് പുറത്തിറക്കി പത്തിന് മുകളിൽ പ്രായക്കാരായ വിദ്യാർഥികൾക്ക് കാർഡ് നൽകും ആക്സിസ് ബാങ്കുമായി സഹകരിച്ചാണ് കെ എം ആർ എൽ ഈ സംവിധാനം ഒരുക്കുന്നത് ക്രിസ്മസ് പുതുവത്സരാഘോഷങ്ങളുടെ ഭാഗമായി സഹക രണ വകുപ്പിന്റെ സഹകരണ വിപണിയ്ക്ക് തുടക്കമായി സംസ്ഥാ നതല ഉദ്ഘാടനം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ തിരുവനന്തപു രത്ത് നിർവഹിച്ചു

കൂടത്തായി കൊലപാതക പരമ്പരയിലെ രണ്ടു കേസുകളിൽ രണ്ടാം പ്രതി കാക്കവയൽ മഞ്ചാടി വീട്ടിൽ എം